രാജ്യത്തെ പരമ്പരാഗത കളിപ്പാട്ട നിർമാണ ശാലകൾക്ക് പ്രോത്സാഹനം നൽകണമെന്ന് ഒ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പു വരുത്തണമെന്നും നിർദേശം

കൂടുതൽ ർ ർ ്യങ്ങളിലേക്ക് വിമാന സർവീസ് ഏർപ്പെടുത്തുമെന്ന് ക്രേന്ദമന്ത്രി ഹർദീപ് സിംഗ് പുരി

കൂടുതൽ രോഗികൾ മഹാരാഷ്ട്രയിലും ആന്ധ്രാ പ്രദേശിലും

കൂടുതൽ രോഗികൾ തിരുവന്തപുരത്ത്

ഇന്ത്യയിൽ നിരവധി കളിപ്പാട്ട നിർമാണശാലകളും പരമ്പരാഗത കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്ന ആയിരക്കണക്കിന് വിദഗ്ധ തൊഴിലാളികളും ഉണ്ട് ഇവ കുട്ടികളെ ന്യൂമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെടുത്തുക മാത്രമല്ല ചെറുപ്രായത്തിൽ തന്നെ അവരുടെ മാനസികാരോഗൃം മെച്ചപ്പെടുത്തുകുയും ചെയ്യുന്നു ഇത്തരം കളിപ്പാട്ടനിർമാണ ശാലകളെ നൂതന്റ ്സർഗാത്മക രീതികളിലൂടെ പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യുവജനങ്ങൾ നൂതന ആശയങ്ങളും രൂപ്പക്ൽപനകളുമായി കളിപ്പാട്ട നിർമാണ രംഗത്തേക്ക് കടന്നു വരണ്ട്മെന്നു്ം ശ്രീ മോദി നിർദ്ദേശിച്ചു

കുടുതൽ വിദേശരാജ്യങ്ങളിൽ നിന്നും മടങ്ങിവരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരേയും സ്വദേശത്ത് തിരികെ എത്തിക്കുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി

കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് അ യച്ച കത്തിലാണ് നിർദേശം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചില സം സ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ കർക്കശമാക്കിയ സാഹചര്യത്തിലാണ് കേന്ദ്ര നിലപാട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്തെ മരണനിരക്കിലും കുറവ് രേഖപ്പെടുത്തി

കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ ഒരു ദശലക്ഷം പരിശോധനകൾ നടത്താനായത് കേന്ദ്ര സർക്കാരിന്റേയും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സർക്കാരുകളുടേയും കൂട്ടായ പ്രയത്നത്തിന്റെ ഭാഗമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി പരിശോധനകളുടെ എണ്ണം കൂടുന്നത് കോവിഡ് കേസുകളുടെ എണ്ണത്തിലും വർദ്ധനയുണ്ടാക്കുമെങ്കിലും ഇതിലൂടെ കൃത്യമായ രോഗനിർണയവും സമ്പർക്ക നിയന്ത്രണവും സാധ്യമാകുമെന്നും ആരോഗ്യമന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു

രാജൃത്ത് കോവിഡ് കേസുകൾ കൂടുന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണെങ്കിലും മരണനിരക്ക് കുറവാണെന്നത് ആശ്വാസം നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു കോവിഡ് പരിശോധനകളുടെ എണ്ണം കൂട്ടാനായത് പ്രതിരോധപ്രവർത്തനങ്ങളിലെ നേട്ടമാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു

ഇതുവരെയുള്ള പരീക്ഷണങ്ങൾ ഫലപ്രദമായിരുന്നൂപ്പ്ന്റും അദ്ദേഹം പറഞ്ഞു

ഇതുവഴി ജീവനക്കാരുടെ ആരോഗ്യ സേതു ആപ്പ് നില പരിശോധിച്ച് ആവശ്യമുള്ളവർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ സൌകര്യം നൽകാൻ സ്ഥാപനങ്ങൾക്ക് സാധിക്കും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത അമ്പതിലധികം തൊഴിലാളികളുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ സൌകര്യം ലഭ്യമാകും പുതിയ സംവിധാനത്തിലൂടെ ജീവനക്കാരുടെ ആരോഗ്യനില എളുപ്പത്തിൽ അറിയാനും സ്ഥാപനങ്ങൾക്ക് കഴിയും

അത്തരത്തിലുള്ള യാതൊരു നടപടിയും സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ലെന്നും റെയിൽവേ അധികൃത്ർ അറിയിച്ചു

കേന്ദ്രഭരണപ്രദേശങ്ങളിലേയും സംസ്ഥാനങ്ങളിലെയും നിയമനത്തിനായുള്ള സമയവും ചെലവും ലാഭിക്കാൻ ഇതുവഴി സാധിക്കുമെന്നും ശ്രീ

മിക്ക സംസ്ഥാനങ്ങളും പുതിയ നയത്തെ അനുകൂലിച്ച് മുന്നോട്ടു വന്നതായും അദ്ദേഹം അറിയിച്ചു

സമ്മേളനത്തിനിടെ തുടർച്ചയായ രണ്ട് ദിവസവും സിറ്റിംഗ് അംഗങ്ങളുടെ മരണത്തെ തുടർന്ന് സഭ നിർത്തിവെച്ചിരുന്നു അജണ്ടകളെല്ലാം പൂർത്തിയാക്കിയശേഷമാണ് ഉത്തർപ്രദേശ് നിയമസഭ കഴിഞ്ഞദിവസം പിരിഞ്ഞത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപ്രൊഷ്ട്പതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഗണേശ ചതുർത്ഥിയോട് അനുബന്ധിച്ച് ആശംസകൾ ്റ്നേർന്നു

ഗണേശ ചതുർത്ഥി ആഘോഷിക്കുന്ന എല്ലാവർക്കും എല്ലാ തടസങ്ങളും മറികടന്ന് പുതിയ തുടക്കമുണ്ടാകട്ടെ എന്ന് ബൈഡൻ ട്വീറ്ററിൽ കുറിച്ചു ബൈഡന്റെ ട്വീറ്റ് പങ്കുവച്ചുകൊണ്ട് കമലയും വിനായകചതുർതഥി ആശംസകളറിയിച്ചു